പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി

ബിജെപി മഹിളാ മോർച്ചാ ദേശീയ സമ്മേളനത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അഭിസംബോധന ചെയ്യും

മൂംബൈയിൽ ഇന്ന് തുടക്കം

നർമ്മദ ജില്ലയിൽ ഏകതാ പ്രതിമയുടെ സമീപമായിരുന്നു സമ്മേളന വേദി സമ്മേളനത്തിന്റെ സ്മരണയ്ക്കായി പുറത്തിറക്കിയ സ്റ്റാമ്പും സൈബർ കോർഡിനേഷൻ സെന്ററിന്റെ പോർട്ടലും പ്രധാനമന്ത്രി പ്രകാശനം ചെയ്തു

രാജ്യത്തുടനീളമുളള ഉന്നതപ്പോലീസ് ഉദ്യോഗസ്ഥരുടെ സമ്മേളനത്തിൽ രാജ്യ സുരുക്ഷ്യായിരുന്നു ചർച്ചാ വിഷയം കേന്ദ്രമന്ത്രി രാജ്നാഥ് സിങ് ഉദ്ഘാടനം ചെയ്ത സമ്മേളനത്തിൽ ജമ്മുകാശ്മീരിലെ ആക്ട്മണ സംഭവങ്ങൾ അതിർത്തി കടന്നുളള തീവ്രവാദം യുവാക്കളെ തീവ്രവാദത്തിനു പ്രേരിപ്പിക്കൽ എന്നിവയായിരുന്നു പ്രധാന ചർച്ചാ വിഷയങ്ങൾ സമ്മേളനം ഇന്നും തുടരും

ജെ

ജെ

വനിതാ പ്രവർത്തകരുടെ ദ്വിദിന സമ്മേളനം രാജ്യ രക്ഷാ മന്ത്രി നിർമ്മലാ സീതാരാമനാണ് ഇന്നലെ ഉദ്ഘാടനം ചെയ്തത് രണ്ടു ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ ഗുജറാത്തിലെത്തിയ പ്രധാനമന്ത്രി രാജ്യത്തെ മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരുടെ വാർഷിക യോഗത്തെ അഭിസംബോധന ചെയ്തു മൂന്ന് ദിവസത്തെ സമ്മേളനം കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി രാജ് നാഥ് സിംഗ് ആണ് ഉദ്ഘാടനം ചെയ്തത്

നിരക്ക് കുറയ്ക്കുമെന്ന പ്രതീക്ഷയ്ക്കിടയിലാണ് ഇന്ന് ജി

ടി കൌൺസിൽ യോഗം ചേരുന്നത്

ആം ആദ്മി പാർട്ടി എം

സിഖ് വിരുദ്ധ കലാപം ഒരു കൂട്ടക്കുരുതി ആയിരുന്നുവെന്ന് പ്രമേയം പറയുന്നു കലാപത്തിലെ ഇരകളുടെ കുടുംബാംഗങ്ങളെ നിയമം ഇപ്പോഴും കണ്ടില്ലെന്ന് നടിക്കുകയാണ് എന്നും ആഭ്യന്തരമന്ത്രിക്ക് സമർപ്പിച്ച പ്രമേയത്തിൽ പറയുന്നു സിഖ് വിരുദ്ധ കലാപവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ്സ് നേതാവ് സജ്ജൻകുമാറിനെ ഡൽഹി ഹൈക്കോടതി ഈയിടെ ശിക്ഷിച്ചിരുന്നു

ആരോഗ്യവും ക്ഷേമവും പട്ടിണിയില്ലായ്മ ലിംഗസമത്വം മികച്ചു വിദ്യാഭ്യാസം വൃവസായവും നൂതന ആശയവും അടിസ്ഥാന സൌകരൃം എന്നീ വിഭാഗങ്ങളിലെ മികവാണ് ഓവറോൾ വിഭാഗത്തിൽ കേരളത്തെ മുന്നിലെത്തിച്ചത് ശുദ്ധജലവും ശുചിത്വും അസമത്വം കുറയ്ക്കൽ മലനിരകളിലെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണം എന്നീ മേഖലകളിലെ മികവാണ് ഹിമാചൽ പ്രദേശിനെ മുന്നിലെത്തിച്ചത്

ദാരിദ്ര്യനിർമ്മാർജ്ജനം ആരോഗ്യവും ക്ഷേമവും സുസ്ഥിര നഗരങ്ങളും ജനവിഭാഗങ്ങളും കരയിലെ ആവാസ വ്യവസ്ഥ സമാധാനവും നീതിയും തുടങ്ങിയവയുടെ അടിസ്ഥാനത്തിലാണ് സൂചിക

പ്രഭാകർ രാവു ടി സന്തോഷ്കുമാർ കെ ദാമോദർ റെഡ്ഡി അക്കൂലില്ളിൽ എന്നിവർ ലെജിസ്ളേറ്റീവ് കൌൺസിൽ ചെയർമ്റ്റൻ ്ട്കെ സ്വാമി ഗൌഡയെ കണ്ട് ടി

സിൽ ചേരുന്നതിന് കത്ത് നൽകുകയായിരുന്നു

എസ്സിൽ ഉൾപ്പെടുത്തിയതായി അംഗങ്ങളെ ചെയർമാൻ വാർത്താ കുറിപ്പ് പുറത്തിറക്കുകയായിരുന്നു

പ്രവേശനം

ഉഭയകക്ഷി ചർച്ചകൾക്ക്ശേഷം ഇരു നേതാക്കളും തുടർന്ന് നടന്ന സാംസ്കാരിക സമന്വയ പരിപാടികളിലും പങ്കെടുത്തു പ്രധാന മന്ത്രി നരേന്ദ്രമോദിയും ചൈന പ്രസിഡന്റ് ഷി ജിം പിങ്ങും പങ്കെടുത്ത വുഹാൻ ഉച്ചകോടിയിലായിരുന്നു ഇരുരാഷ്ട്രങ്ങളു ടേയും സാംസ്കാരിക വിനിമയ പരിപാടികൾ നടത്തുവാനുള്ള തീരുമാനം കൈക്കൊണ്ടിരുന്നത്

ഏഴ് ചൈനീസ് ചിത്രങ്ങളും മൂന്ന് ഇന്ത്യൻ ചിത്രങ്ങളും ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കും

കൂടുതൽ വിവരങ്ങളുമായി പ്രിയ

വിമാനങ്ങളിലേതുപോലെ ട്രെയിനിലും ഇനി ഷോപ്പിങ് നടത്താം ഗൃഹ ഉപകരണങ്ങളും സൌന്ദരൃവർദ്ധക വസ്തുക്കളും വ്യായാമോപകരണങ്ങളും ട്രെയിനിനൂള്ളീൽ നിന്ന് വാങ്ങാൻ കഴിയും

ജനുവരി മുതൽ പദ്ധതി നടപ്പാക്കുമെന്ന് റെയിൽവേ മന്ത്രാലയം അറിയിച്ചു

ഭക്ഷണപദാർത്ഥങ്ങളും സിഗരറ്റ് മദ്യം ഉൾപ്പെടെയുള്ള ലഹരിവസ്തുക്കളും വിൽക്കാനാകില്ല ക്രഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ച് സാധനങ്ങൾ വാങ്ങാം

ലോക ചാമ്പ്യൻ സ്പെയിനിന്റെ കരോളീന മാരിൻ ഇന്ത്യയുടെ പി

സിന്ധു ഉൾപ്പെടെയുള്ള മുൻനിര താരങ്ങൾ ലീഗിൽ മത്സരിക്കുന്നുണ്ട് പതിനേഴ് രാജൃങ്ങളിൽ നിന്നുള്ള തൊണ്ണൂറോളം കായിക താരങ്ങൾ ലീഗിൽ പങ്കെടുക്കും

ഉത്തരവിൽ ആശങ്ക വേണ്ടെന്നും മന്ത്രാലയം വിശദീകരിക്കുന്നു സംശയമുള്ള ആരുടേയും കമ്പ്യൂട്ടറുകളിൽ കടന്നു കയറി ഡേറ്റ പരിശോധിക്കാനും നിരീക്ഷണം നടത്താനും അന്വേഷണ ഏജൻസികൾക്ക് അനുവാദം നൽകുന്നതാണ് നടപടി രാജ്യത്തെ പത്ത് ഏജൻസികൾക്കാണ് ഇതിനുള്ള അനുവാദം സി ബി ഐ എൻ ഐ എ റോ തുടങ്ങിയ ഉന്നത അന്വേഷണ ഏജൻസികൾ ആവശ്യപ്പെട്ടാൽ ഏത് വിവരവും നൽകാൻ ഇന്റർനെറ്റ് സേവനദാതാക്കളും പൌരന്മാരും നിർബന്ധിതരാവും

യാത്രക്കാരുടെ എണ്ണത്തിലും ഗണ്യമായ വർദ്ധന വാണ് ഉണ്ടായിരിക്കുന്നത്